മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാരത്തുകയാണ് സ്ഥലമുട മകൾക്ക് കേരളത്തിൽ നൽകുന്നത് ഇതിനായി ഉയർന്ന വില നൽകുന്നതിൽ ഗവൺമെന്റിന് മടിയില്ലെന്നും രാമ നാട്ടു കരയിൽ പിണ റായി അറിയിച്ചു നേരത്തെ തൊണ്ടയാട് മേൽപ്പാലവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു

സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് രണ്ട് മേൽപ്പാലങ്ങളും നിർമ്മിച്ചത് രാമനാട്ടുകര വെങ്ങളം ബൈപാസ് ആറുവരിയാക്കു ന്നതിന്റെ ഭാഗമായാണ് മൂന്നുവരി ഗതാഗത സൌകര്യ ത്തോടെ മേൽപ്പാലങ്ങൾ നിർമ്മിച്ചത് രണ്ട് സ്ഥലങ്ങ ളിലും ഓരോ മൂന്നുവരിപ്പാലങ്ങൾകൂടി ദേശീയപാതാ അതോറിറ്റി നിർമ്മിക്കും

ഉച്ചയ്ക്ക് മന്ത്രി ജി സുധാകരൻ എലത്തൂരിൽ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മന്ത്രിമാരായ ജി സുധാകരൻ എ കെ ശശീ ന്ദ്രൻ ടി പി രാമകൃഷ്ണൻ എ പ്രദീപ് കുമാർ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു

കോൺഗ്രസിന്റെ സ്ഥാപക ദിനാഘോഷം തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രളയത്തിനുശേഷം ഒന്നിച്ചു നിൽക്കേണ്ട ജനതയെ ഭിന്നിപ്പിക്കുന്ന വനിതാമതിൽ വർഗ്ഗീയ മതിൽ തന്നെ യാണ് ട്രഷറിയിലെ പണമുപയോഗിച്ച് സാമൂഹ്യമായ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമാണ് ഗവൺമെന്റിന്റെ പരിപാടിയാണ് വനിതാമതിലെങ്കിൽ ആദ്യം വിളിക്കേണ്ടത് പ്രതിപക്ഷത്തെയാണെന്നും എന്നാൽ അങ്ങ നെ യു ണ്ടാ യി ല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് കുട്ടികളെ പങ്കെടുപ്പിച്ചാൽ നിയമനടപടി സ്വീകരിക്കു മെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു

ശബരിമല വിഷയത്തിന്റെ പേരിൽ ഗവൺമെന്റിനെ വിമർശിക്കുന്ന എൻ എസ് എസ്സും മറ്റ് സംഘടനകളും പുനർവിചിന്തനം നടത്ത ണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു

നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകൾക്ക് വനിതാ മതിലിൽ നിന്നും കാണിക്കാ നിൽക്കാനാകില്ല മാറി ബി ഡി ജെ എസ് നവോത്ഥാന മൂലൃങ്ങൾക്ക് വില നൽകുന്നത് കൊണ്ടാകാം ഈ നിലപാട് സ്വീകരിച്ചത് ശബരിമലയിൽ ശാന്തിക്കും സമാധാനത്തിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്ന തെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലക്കാട് അടക്കം ജില്ലകളിൽ നിന്ന് വനിതാമതി ലിനു വേണ്ടി ക്ഷേമപെൻഷനിൽ നിന്ന് തുക പിരിച്ച സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോയെന്ന് സംശയിക്കു ന്നതായി മന്ത്രി പറഞ്ഞു പെൻഷനിൽ നിന്ന് വനിതാമതിലിന് പണം പിരിച്ചതിൽ പരാതിയില്ലെന്ന് വയോധികർ പറയുന്ന വീഡിയോ പാലക്കാട് സി പി ഐ എം ജില്ലാകമ്മറ്റി പുറത്തുവിട്ടിരുന്നു

ബി ഡി ജെ എസ്സുമായി നിലവിൽ തർക്കങ്ങളി ല്ലെന്നും അവർ എൻ ഡി എ യിൽ തുടരുമെന്നും കണ്ണ ന്താനം വൃക്തമാക്കി

എറണാകുളം ജനറൽ ആശു പത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റുമോർട്ട നടപടികൾക്കുശേഷമാണ് കൈമാറുക ബന്ധുക്കളുടെ താത്പര്യപ്രകാരം മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടു പോകുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃ തർ വ്യക്തമാക്കി ചീഫ് പെറ്റി ഓഫീസർമാരായ ഹരിയാന സ്വദേശി നവീൻ രാജസ്ഥാൻ സ്വദേശി അജിത്സിംഗ് എന്നിവ രാണ് ഇന്നലെ രാവിലെയുണ്ടായ അപകടത്തിൽ മരിച്ച ത്

ഇന്നലെ രാത്രി യായിരുന്നു അപകടം തിലക് നഗറിലെ ഗണേഷ് ഗാർഡന് സമീപം ഹൌസിംഗ് സൊസൈറ്റിയിലാണ് തീപ്പിടുത്തമുണ്ടായത്

ലലലലലലലലലലലലല പ്രധാനമന്ത്രിയുടെ ആസ്പിരേഷണൽ ജില്ലാ പരിപാ ടിയിൽ തമിഴ്നാട്ടിലെ വിരുത്നഗറിനെ മികച്ച ജില്ലയായി തെരഞ്ഞെടുത്തു ഒഡീഷയിലെ നവാപാട യു പിയിലെ സിദ്ധാർത്ഥ് നഗർ എന്നിവയ്ക്കാണ് തുട്ടർ സ്ഥാനങ്ങൾ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നും തടസ്സപ്പെട്ടു

റഫേൽ ഇടപാട് കാവേരിയിലെ അണക്കെട്ട് നിർമ്മാണം വനിതാ സംവരണ ബിൽ തുടങ്ങിയ വിഷ യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇരു സഭകളിലും പ്രതിപക്ഷ എം പിമാർ മുദ്രാവാകൃ വിളിയുമായി സഭാനടപടികൾ തടസ്സപ്പെടുത്തിയത് ലോക്സഭ അല്പം മുമ്പ് വീണ്ടും സമ്മേളിച്ചു

ഈ വർഷത്തെ സെലക്ഷൻ പാനലിൽ ഖേലോ ഇന്ത്യയുടെ പ്രതിനിധി കളും ഉണ്ടായിരിക്കും

കൊൽക്കത്തയിൽ ഐ ലീഗ് ഫുട്ബോളിൽ മുൻചാ മ്പ്യൻമാരായ മോഹൻബഗാൻ ഇന്ന് നെരോക എഫ് സി യെ നേരിടും മറ്റൊരു മത്സരത്തിൽ റിയൽ കശ്മീർ ഈസ്റ്റ് ബംഗാളിനെ നേരിടും

അറ്റകുറ്റപ്പണികൾ അവസാനഘട്ടത്തിലാണെന്നും സൂപ്രണ്ട് പറഞ്ഞു

കെ രാഘവൻ എം

ഉംറയ്ക്കു പോകുന്ന തീർത്ഥാടകർക്ക് പുതിയ സർവീസ് സഹായകമാകും

ജനപക്ഷം കാസർകോട് ലോക്സഭാ മണ്ഡലം പ്രവർത്തക കൺവൻഷൻ ചിറ്റാരിക്കാലിൽ ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു പി സി ജോർജ്

നെന്മാറ തിരുമിറ്റക്കോട് എന്നിവിടങ്ങളിൽ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അറിയിച്ചു

കെ രാജേഷ് കുമാർ അർഹനായതായി ഭാര വാഹികൾ കണ്ണൂരിൽ അറിയിച്ചു ദീപികയിൽ പ്രസിദ്ധീ കരിച്ച ട്രാക്ക് വിട്ട കളികൾ എന്ന ലേഖനപരമ്പര യ്ക്കാണ് അവാർഡ്

കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴി ക്കോട് താലൂക്ക് കമ്മിറ്റി നാളെ ലൂയിബ്രെയിൽ അനു സ്മരണം നടത്തും രാവിലെ കുണ്ടായിത്തോട് വി ടി സി സെന്ററിൽ എഴുത്ത് വായന മത്സരവും കിസ് മത്സരവും ഉണ്ടായിരിക്കും

രാവിലെ ചൊക്സി പൊലീസ് നടത്തിയ റെയ്ഡിലാണ് കാവിമുണ്ടിൽ പൊതിഞ്ഞ നില യിൽ വാളുകളും ഇരുമ്പുപൈപ്പും പിടികൂടിയത് പ്രശസ്ത റേഡിയോ നാടക ആർട്ടിസ്റ്റ് കെ

കെ എസ് ആർ ടി സി കണ്ടക്ടർ കോട്ടയ്ക്കൽ പുതുപ്പറമ്പ് ഞാറത്തടം സ്വദേശി മോയൻ അബ്ബാസ് ആണ് മരിച്ചത് ലലലലലലലലലലലല പ്രളയാനന്തര പുനരധിവാസ പ്രവർത്തനങ്ങൾ മികച്ച ഏകോപനത്തോടെ നടത്തുന്നത് എറണാകുളം ജില്ലയി ലാണെന്ന് കലക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള പറഞ്ഞു